മന്ത്രാലയത്തിന്റെ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉടൻ തൂടങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഴയ രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ യുവാക്കൾക്ക് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്യാനം

തമിഴ്നാടും തമ്മിൽ കനത്ത പോരാട്ടം

ചുറ്റുവട്ടത്തുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിനു വേണ്ടിയും മഴപ്പെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയും ജലശക്തി മന്ത്രാലയം ജലശ്രക്തിയജ്ഞമായ കൃാച്ച് ദ റെയിൻ ആരംഭിക്കാൻ തുടങ്ങുകയാണ്ണെന്നു് അദ്ദേഹം പറഞ്ഞു

യോഗീതുലൃനായ സന്ത് രവിദാസിൽ നിന്ന് യുവാക്കൾക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്വന്തം ജീവിതം എങ്ങനെയാകണമെന്ന് യുവാക്കൾ നിർണയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

വലിയ വസ്തുക്കളുടെ നിർമ്മാണങ്ങളേ ഭാരതത്തെ ആത്മനിർഭരമാക്കുകയുള്ളൂ എന്നില്ല ഭാരതത്തിൽ നിർമ്മിച്ച വസ്ത്രം ഭാരതത്തിലെ പ്രതിഭാശാലികളായ ശില്പികൾ നിർമ്മിക്കുന്ന കരകൌശല വസ്തുക്കൾ ഭാരതത്തിലെ ഇലക്ട്രോട്ടോണിക് ഉപകരണങ്ങൾ ഭാരതത്തിലെ മൊബൈൽ അങ്ങന്റെ ഓരോ മേഖലയിലും ഈ അഭിമാനം ഉയർത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക വർഷത്തിലെ അവസാന ക്ട് മീഴ്സമായതിനാൽ അടുത്ത മാസം വ്യാപാരികളുടെയും ക്ർമ്മോത്സുകരായ സുഹൃത്തുക്കളുടെയും തിരക്കുകളും വളരെ വ്ർദ്ധിച്ചിരിക്കുന്നുണ്ട് ഇക്കാരൃങ്ങൾക്കിടയിൽ കൊറോണയോടുള്ള നമ്മുടെ ജാഗ്രത കൂറയാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമൻ രാമൻ ഇഫക്ട് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് രാജ്യം ഈ ദിനം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്

ലോകജനതയുടെ സമാധാനത്തിന്റെ ് പുരോഗതിക്കും ശാസ്ത്രം പ്രയോജനപ്പെടണമെന്ന് ഉപരാഷ്ട്രപ്തി പറഞ്ഞു രാജ്യത്തെ ഓരോ പൌരനും സ്വന്തം ജീവിതത്തിൽ ഓരോ മേഖലയിലും ശാസ്ത്രത്തെ പ്രാവർത്തികമാക്കുകയാണ്ണെങ്കിൽ പുരോഗതിയുടെ മാർഗ്ഗങ്ങൾ തുറക്ക പ്പെടുമെന്ന് മൻ കി ബാതിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

റീജ്യണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മൂന്ന് ടെസ്ല എം ആർ ഐ മെഷീൻ പുതിയ എം ആർ ഐ ബ്ലോക്ക് പി ജി ഹോസ്പിറ്റൽ പുതിയ ന്യൂറോ സർജറി ഐ

തുടങ്ങി ഒട്ടനവധി സൌകര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ദേശീയ ശാസ്ത്ര ദിനാഘോഷങ്ങളിലും മന്ത്രി പങ്കെടുക്കും

ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ സ്ഥാപകരിൽ ഒരാളായ സതീഷ് ധവാന്റെ പേരിലുള്ള നാനോ സാറ്റലൈറ്റ് ഗണത്തിൽ പെടുന്ന കൃത്രിമോപഗ്രഹവും ബഹിരാകാശത്ത് എത്തിക്കും മൂന്ന് സൈന്റഫിക്ക് പേ ലോഡുകളാണ് ഈ കൃത്രിമോപഗ്രഹത്തിനുള്ളത്

സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ഈ കൃത്രിമോപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്